ഏഴ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് വെള്ളപ്പൊ ക്ക ഉരുൾപൊട്ടൽ സാധൃത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിത്താമസിക്കണമെന്ന് മുഖ്യ്മന്ത്രി പിണറായി വിജ യൻ അഭ്യർത്ഥിച്ചു

നിലമ്പൂർ കവളപ്പാറയിലെയും വയനാട് പുത്തുമലയിലെയും മണ്ണി ടിച്ചിലിൽ കാണാതായവരുടെ എണ്ണം കൂടി പരിഗണിക്കുമ്പോൾ മരണസംഖ്യ ഉയരാനാണ് സാധ്യത

കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് അതി തീവ്രമഴക്ക് സാധൃത കാസർകോട് തൃശൂർ കോട്ട യം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മഴസാധൃത മുൻനിർത്തി ഓറഞ്ച് അലർട്ടും നൽകിയിട്ടുണ്ട് രുട്ട്ട്ട്ട്ട്ട്ട്ട ഉരുൾപൊട്ടൽ വെള്ളപൊക്ക സാധൃത നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ തൽക്കാലം സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിത്താമസിക്ക ണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു രക്ഷാപ്രവർത്തക രുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഇതുസംബന്ധിച്ച അഭ്യർത്ഥന എല്ലാ വരും മാനിക്കണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളന ത്തിൽ പറഞ്ഞു അപകടമേഖലയിൽ നിന്ന് മാറാൻ വിസമ്മതിക്കുന്നത് നിർഭാ ഗ്യകരമായ സംഭവങ്ങൾക്ക് കാരണമാകും

പൊതുജനങ്ങൾക്കും രക്ഷാപ്രവർത്തകർക്കും കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നതാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവ ശ്യമായ സൌകര്യങ്ങളൊരുക്കാൻ നഗരകാര്യ ഡയറക്ടറേറ്റിലും കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്

മൃഗസംരക്ഷണ വകുപ്പും എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു ദർവ്വഹിദ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ കവളപ്പാറയിലെ ഉരുൾപൊട്ടലിൽ കാണാ തായവർക്കുവേണ്ടി പുലർച്ചെ തെരച്ചിൽ ആരംഭിച്ചു

മൂന്ന് മൃതദേഹങ്ങൾ അപകടസ്ഥലത്തുനിന്ന് കണ്ടെടുത്തു ഇന്നലെ വൈകീട്ടുവരെ വിവിധ ദുരന്തങ്ങളിൽ ഒൻപതുപേർ മരിച്ചതായാണ് ഔദ്യോഗിക അറിയിപ്പ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ സേന യുടെ രണ്ട് സംഘത്തെക്കൂടി അയയ്ക്കണമെന്ന് മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി കെ ടി ജലീൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവ ലോകന യോഗം ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു

ഒറ്റപ്പെട്ട ആളുകൾക്ക് ഭക്ഷണമെത്തിക്കാനും സുരക്ഷിത മായി ഒഴിപ്പിച്ചുമാറ്റാനും ഹെലികോപ്ടറുകൾ ഒരുക്കുന്നതിനെക്കുറിച്ച് മുഖ്യ മന്ത്രിയെ ധരിപ്പിച്ചതായി മന്ത്രി കെ ടി ജലീൽ പറഞ്ഞു കാലാവസ്ഥാ മുന്ന റിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിപ്പാർപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പല കോള നികളിലും ആളുകൾ സഹകരിച്ചില്ലെന്ന് മന്ത്രി വെളിപ്പെടുത്തി ഇവരെ രക്ഷി ക്കാൻ ശ്രമങ്ങൾ തുടരുകയാണ് മലപ്പുറം ജില്ലയിലെ തുടരുന്ന പ്രളയസാ ഹചര്യം തടയാൻ ഒറീസയിലെ ഹിരാക്കുഡ് മാതൃകയിൽ പ്രത്യേക പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി അറിയിച്ചു

ഇന്നലെ രാത്രി വരെ എട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇതിൽ ഏഴുപേരെ തിരിച്ചറിഞ്ഞിട്ടു ണ്ട് വയനാട്ടിലെ പ്രധാന അണക്കെട്ടുകളായ ബാണാസുര സാഗ്ററിലും കാരാ പ്പുഴയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ റെക്കോർഡ് മഴിരേഖപ്പെടുത്തി

പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരാപ്പുഴ ഡാമിന്റെ ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ അമ്പലവയൽ റോഡിൽ കാരാപ്പുഴ മുതൽ അടിവാരം വരെ ഗതാഗതം നിരോധിച്ചു

കെ ശശീന്ദ്രന്റെയും രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെയും സാന്നിധ്യ ത്തിൽ ജില്ലയിലെ കാലവർഷ കെടുതിയും സാഹചര്യവും കൽപ്പറ്റയിൽ വിലയിരുത്തി

വൈദ്യസഹായവും മറ്റ് സൌക ര്യങ്ങളും പ്രത്യേക പരിഗണന ആവശ്യമായവർക്ക് വേണ്ട കരുതലുകളും ക്യാമ്പുകളിൽ ഉറപ്പുവരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വയനാട്ടിലെ ബാണാസുരസാഗർ അണക്കെട്ട് തുറക്കേണ്ട സാഹചര്യമാണെന്നും അതി നാൽ ജില്ലയിൽ കനത്ത ജാഗ്രത ആവശ്യമാണെന്നും പിണറായി വിജയൻ വിലയിരുത്തി അവധിയെടുത്ത ഗവൺമെന്റ് ജീവനക്കാർ പ്രത്യേക സാഹ ചര്യത്തിൽ ജോലിക്കെത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ഇന്നും അടുത്ത രണ്ട് ദിവസങ്ങളിലും രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ എല്ലാ ജീവനക്കാർക്കും വകുപ്പ് മേധാവികൾ ചുമതല നിശ്ചയിച്ച് നൽകണമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിട്ടു

തേജസ്വിനി പുഴ കരകവിഞ്ഞ് വീടുകളിൽ വെള്ളം കയറി നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മഞ്ചേശ്വരം മുട്ടോളി കടപ്പു റത്ത് കടലാക്രമണം രൂക്ഷമായതിനെ തുടർന്ന് ഒൻപത് കുടുംബങ്ങളെ മാറ്റി പ്പാർപ്പിച്ചു കോടോം ബളൂരിൽ വെസ്റ്റ് എളേരിയിലെ ചെങ്കുത്തായ കുന്നിൻ ചെരിവുകളിൽ കഴിയുന്നവരോട് മാറിതാമസിക്കാൻ ജില്ലാ കലക്ടർ ആവ ശൃപ്പെട്ടു ദർവ്വെട്ടറ തൃശൂർ ജില്ലയിൽ രക്ഷാപ്രവർത്തനത്തിന് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു പൊലീസ് എക്സൈസ് ഫയർഫോഴ്സ് അക്കാദമികളിലെ സേനാംഗങ്ങളുടെ സേവ നവും വാഹന സൌകര്യവും ദുരിതാശ്ചാസ പ്രവർത്തനങ്ങൾക്ക് വിട്ടുനൽകി യതായും കലക്ടർ അറിയിച്ചു

തലപ്പിള്ളി താലൂക്കിലെ അസുരൻകുണ്ട് ഡാം തുറക്കാൻ സാധ്യതയുണ്ടെന്നും തീരവാസികൾ ജാഗ്രത പാലിക്കണ മെന്നും ജില്ലാ കലക്ടർ മുന്നറിയിപ്പ് നൽകി രുമെട്ടിട്ടുള അപകടമേഖലയിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശ പ്രകാരം മാറിത്താ മസിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് മന്ത്രി ഇ

മന്ത്രി കെ കെ ശൈലജയും അവലോകന യോഗത്തിൽ പങ്കെ ടുത്തു ക്യാമ്പുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ സേവനം ലഭ്യമാക്കിയി ട്ടുണ്ടെന്ന് മന്ത്രി കെ

ശ്രീകണ്ഠപുരത്ത് കുടുങ്ങിപ്പോയവരിൽ നാല്പ തോളം പേരെ രക്ഷപ്പെടുത്തി ടെറിട്ടോറിയൽ ആർമി രക്ഷാപ്രവർത്തനങ്ങ ളിൽ പങ്കെടുക്കുന്നുണ്ട്

പെരുവണ്ണാമൂഴി യിലും ജലനിരപ്പ് ഉയർന്നു

താമരശേരി മരുതിലാവിൽ ഉരുൾപൊട്ടിയ പ്രദേശത്തെ കുടും ബങ്ങളെ മാറ്റിപാർപ്പിച്ചു സൈനൃത്തിന്റെ സഹായത്തോടെ റോഡുകൾ പു നഃസ്ഥാപിച്ചു

കോഴി ക്കോട് കക്കയത്ത് പവർ ഹൌസിന് സമീപം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് വൈദ്യുതി ഉത്പാദനം നിർത്തിവെച്ചു ജലനിരപ്പ് ഉയർന്നതിനാൽ കക്കയം ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട്

എസ് ഇ ബിയുടെ കീഴിലെ ഏഴ് അണക്കെട്ടുകൾ തുറ ന്നു കോഴിക്കോട്ടെ കക്കയം തൃശൂരെ പെരിങ്ങൽക്കുത്ത് ഇരട്ടയാർ കല്ലാർ കല്ലാർക്കുട്ടി മൂന്നാർ ഹെഡ്വർക്സ് ഇടുക്കിയിലെ ലോവർ പെരിയാർ അണ ക്കെട്ടുകളാണ് ഇതിനകം തുറന്നത്

ജലവിതാനം ഉയരുന്നതിൽ ആശങ്കക്ക് അടിസ്ഥാനമില്ലെന്നും ഡാം തുറക്കേണ്ട സാഹചര്യം നിലവിലില്ലെന്നും ഇടു ക്കിയിൽ മന്ത്രി സി രവീന്ദ്രനാഥിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗം വില യിരുത്തി

കല്പറയിൽ വെള്ളത്തിൽ വീണ ഒരാൾ മരിച്ചു

കഴിഞ്ഞ ദിവസത്തെ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് പരി ക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ ഇടുക്കി കല്ലാറിൽ മരിച്ചു

എസ് ഇ

വിയ്യൂർ ഓഫീസിലെ ഉദ്യോഗസ്ഥനായ ബൈജുവാണ് മരിച്ചത്

ഇന്നലെ മിനായിൽ രാപാർത്ത ഹാജിമാർ അർദ്ധരാത്രിയോടെ ലബ്ബൈക്ക മന്ത്രം ഉരു വിട്ട് അറഫയിലേക്ക് പുറപ്പെട്ടു